കോവിഡ് പ്രതിരോധ കുത്തിവെയ്പിന് രാജ്യത്ത് മികച്ച പ്രതികരണം

രാജ്യത്ത് കോവിഡ് വ്യാപന്നും രൂക്ഷമായി തുടരുന്നു

കേന്ദ്രത്തോട് കൂടുതൽ കോവിഡ് വാക്സിൻ ആവശ്യപ്പെട്ട് കേരളം രണ്ട് ദിവസത്തേക്കുള്ള വാക്സിൻ ്മാത്രമാണ് സംസ്ഥാനത്ത് ഉള്ളതെന്ന് ആരോഗൃമന്ത്രി കെ

പശ്ചിമബംഗാളിൽ അഞ്ചാംഘട്ട തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ശക്തമായി

എല്ലിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് പഞ്ചാബ് കിങ്സിനെ നേരിടും

എന്നാൽ രാജ്യത്ത് ് കോപിഡ് വ്യാപനം അതിരൂക്ഷമായി തുടരുകയാണ്

കൊറോണയ്ക്ക് എതിരെയുള്ള രണ്ടാം മഹായുദ്ധമായാണ് വാക്സിൻ ഉത്സവത്തെ പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത് സാമൂഹ്യ പരിഷ്കർത്താവ് ജ്യോതിബ ഫുലെയുടെ ജന്മവാർഷികമായ ഇന്നലെ ആരംഭിച്ച വാക്സിൻ ഉത്സവം അംബേദ്കർ ജയന്തി ദിനമായ മറ്റ ന്നാൾ സമാപിക്കും

സി എം ആർ അറിയിച്ചു ന്യൂസ്ഡെസ്ക് ആകാശവാണി

വൻതോതിൽ വാക്സിൻ കുത്തിവയ്പ്പ് തുടങ്ങിയതോടെ ലഭ്യതക്കുറവുണ്ടെന്നും പല മേഖലയിലും രണ്ട് ദിവസത്തേക്കുള്ള കരുതൽ ശേഖരം മാത്രമാണുള്ളതെന്നും മന്ത്രി അറിയിച്ചു

എല്ലാവരുടേയും ജീവൻ വിലപ്പെട്ടതായതിനാൽ വാക്സിൻ കയറ്റിഅയക്കാൻ പാടില്ലെന്നും പറയാനാവില്ല അതേസമയം നമുക്ക് വാക്സിൻ ലഭ്യത ഉറപ്പാക്കിയിട്ട് വേണം വിദേശത്തേക്ക് കയറ്റി അയക്കേണ്ടതെന്നും ആരോഗൃമന്ത്രി പറഞ്ഞു നിലവിലെ കോവിഡ് സാഹചര്യത്തിൽ തൃശൂർ പൂരത്തിന് വലിയ ആൾക്കൂട്ടം ഉണ്ടാകുന്നത് അപകടകരമാണ് ആറ്റുകാൽ പൊങ്കാല നടത്തിയതു പോലെ പ്രതീകാത്മകമായി തൃശൂർപൂരം നടത്താനാകുമോ എന്ന് ആലോചിക്കണമെന്നും ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡ് ചർച്ചയിലൂടെ തീരുമാനം എടുക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ജനിതകമാറ്റം വന്ന വൈറസ് കൂടുതല്ലിയി ് സംസ്ഥാനത്ത് ഇല്ലെന്ന് വൃക്തമാക്കിയ മന്ത്രി നിലവിലെ ്സ്ഥിതിയിൽ മുന്നോട്ട് പോയാൽ ദിവസവും പതിനായിരം രോഗികളെന്ന നിരക്കിലേക്ക് സംസ്ഥാനം എത്തിയേക്കുമെന്നും പറഞ്ഞു

ട്രെയിൻ യാത്രക്കാർക്ക് കോവിഡ് നെഗറ്റീവ് സർട്ടിഫി ക്കറ്റ് നിർബന്ധമാക്കാനും ഛത്തീസ്ഗഢ് തീരുമാനിച്ചു സർട്ടിഫി ക്കറ്റ് ഇല്ലാത്ത യാത്രക്കാർക്ക് റെയിൽവേ സ്റ്റേഷനിൽ കോവിഡ് ടെസ്റ്റ് നടത്തും ഇതിനായി ഛത്തീസ്ഗഡിലെ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും പരിശോധനാ സംവിധാനം ഏർപ്പെടുത്തിവരികയാണ്

ഈ സംസ്ഥാനങ്ങളിൽ കോവിഡ് പരിശോധനകളും വാക്സിനേഷനും ഉയർത്തണമെന്ന് കേന്ദ്ര ആരോഗൃ സെക്രട്ടറി രാജേഷ് ഭൂഷൺ കത്തിലൂടെ ആവശ്യപ്പെട്ടു കേന്ദ്ര സംഘങ്ങളുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നിർദ്ദേശം

റെംഡെസിവിർ ഡോസുകളുടെയും ഇതിനാവശ്യമായ ഫാർമസ്യൂട്ടിക്കൽ ചേരുവകകളുടെയും കയറ്റുമതിയാണ് കേന്ദ്രം നിരോധിച്ചത്

വരും ദിവസങ്ങളിൽ മരുന്നിന്റെ ആവശ്യം ഇനിയും വർദ്ധിക്കാൻ ഈ സാധ്യതയുണ്ടെന്നാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ റെംഡെസിവിറിന്റെ വർദ്ധിപ്പിക്കുന്നതിന് ഉത്പാദനം ഫാർമസ്യൂട്ടിക്കൽ വകുപ്പ് ആഭ്യന്തര നിർമ്മാതാക്കളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു

പ്രധാനമന്ത്രി നരേന്ദ്രമോദീയും ആഭ്യന്തരമന്ത്രി അമിത് ഷായും ഇന്ന് വിവിധ റാലികളിലും റോഡ് ഷോകളിലും പങ്കെടുക്കും ബർദമാൻ കല്യാണി ബറാസത്ത് തുടങ്ങിയ മണ്ഡലങ്ങളിൽ നടക്കുന്ന പൊതു സമ്മേളനങ്ങളെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും

മുഖ്യമന്ത്രി യെദ്യൂരപ്പയും കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡി

ശിവകുമാറും പ്രചാരണത്തിൽ സജീവമാണ്

എൽ ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് പഞ്ചാബ് കിങ്സിനെ നേരിടും

യുദ്ധവിരുദ്ധരായ സാമൂഹിക പ്രവർത്തകർക്കായി അദ്ദേഹം കോടതിയിൽ നിയമപോരാട്ടങ്ങൾ നട ത്തി വിയറ്റ്നാം യുദ്ധത്തിലും ഏറ്റവും ഒടുവിൽ ഇറാഖിൽ സദ്ദാം ഹുസ്സൈനു നേരെ നടത്തിയ ആക്രമണത്തേയും സംബന്ധിച്ച അമേരിക്കൻ നിലപാടുകളെ റാംസേ വിമർശിച്ചിരുന്നു

ഈ തീരുമാനം ബിസിനസ്സ് രംഗത്ത് വലിയ തോതിൽ ആശ്വാസം പകരുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ പ്രത്യാശ പ്രകടിപ്പിച്ചു എന്നാൽ ജനങ്ങൾ കോവിഡ് പ്രതിരോധ നടപടികൾ കൃത്യമായി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു ഈ ജനുവരി മുതൽ ആയിരക്കണക്കിന് ബിസിനസ്സ് സ്ഥാപനങ്ങളാണ് ഇവിടെ അടഞ്ഞു കിടക്കുന്നത് കോവിഡ് വൈറസിന്റെ പുതിയ വകഭേദം കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു ഈ നീക്കം

ഇക്കാര്യത്തിൽ ചൈന സുതാര്യത്യ പുലർത്തുന്നില്ലെന്ന് യു എസ് വിദേശകാരൃ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ആരോപിച്ചു